കുട്ടികൾക്കെതിരെയുള്ളൂ ലൈംഗിക അതിക്രമങ്ങ ൾക്ക് കടുത്ത ശിക്ഷർ ഉറപ്പാക്കി പോക്സോ നിയമ ഭേദഗതിക്ക് കേന്ദ്ര മിന്തിസ്ഭ അംഗീകാരം നൽകി

ആഗോള സംസ്കാരം കൂട്ടിയിണക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ഇന്തൃയിൽ സന്ദർശനം നടത്തുന്ന ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോ ലോത്തേ ഷെറിംഗുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്കുശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

ഭൂട്ടാൻ പ്രധാനമന്ത്രിയായി അധീക്ടാർമേറ്റശേഷമുള്ള ആദ്യ വിദേശ സന്ദർശനമായിരുന്നൂ ് പ്പോ്

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ന്റയ്ന്നുന്ത ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നു വേളയിലാണ് ഭൂട്ടാൻ പ്രധാന മന്ത്രിയുടെ ഇന്ത്യാ സ്കന്ദർശനം

ഇന്ത്യയുട്ടെ ഏറ്റവും വിശ്വസ്തമായ രാജ്യമായി ഭൂട്ടാനെ കാണുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി ബഹിരാകാശ ശാസ്ത്രരംഗത്തുള്ള ഇരു രാജ്യങ്ങളുടേയും സഹകരണം ഇന്ത്യ ഭൂട്ടാൻ ബന്ധ ത്തിൽ പുതിയ മാനങ്ങൾ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എസ് ആർ ഒ

സന്ദർശനത്തിന് മുന്നോടിയായി രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയ്ക്ക് രാജ്ഘട്ടിൽ ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വാരാണസിയിൽ ആറാമത് അന്താരാഷ്ട്ര നെല്ലുഗവേഷണ കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യ പ്രാദേശികകേന്ദ്ര ക്യാമ്പസ് അദ്ദേഹം രാഷ്ട്രത്തിനു സമർപ്പിക്കും ദക്ഷിണേഷൃയിലെയും സാർക്ക് മേഖലയിലെയും നെല്ല് ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുമെന്ന് ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു കിഴക്കൻ ഇന്ത്യയിലെ ഈ ആദ്യത്തെ അന്താരാഷ്ട്ര കേന്ദ്രം നെല്ലിന്റെ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു വാരാണസിയിലെ ദീൻദയാൽ ഹസ്തകല സംഗൂളിൽ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പ്രാദേശിക ഉച്ചകോട്ടിയിലും പ്രധാന മന്ത്രി പങ്കെടുക്കും രാജ്യത്തെ ചെറിയ പട്ടണ്ട്ടളിലെയും ജില്ലകളി ലെയും സാധാരണ ജനങ്ങളുടെ ട്ട്ന്റ്പുണ്യവും തദ്ദേശീയമായ വ്യാപാരം കരകൌശലം ഉൽപ്പന്നുണ്ട്ടൾ എന്നിവയ്ക്കുള്ള ആവ ശ്യവും വർദ്ധിപ്പിക്കാൻ ഒരു ജീീല്ല ഒരു ഉൽപ്പന്നം പദ്ധതി ലക്ഷ്യ മിടുന്നു ഇതിലൂടെ കരക്ട്ടൂൾല ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ സംസ്ക രണം കാർപ്പറ്റ് റെഡ്ടിമെയ്ഡ് വസ്ത്രങ്ങൾ ലെതർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിദ്ദേശ്രന്മണ്യം നേടിത്തരുന്നതിനു പുറമേ ജനങ്ങൾക്ക് തൊഴിലവ്സരങ്ങളും സൃഷ്ടിക്കുന്നു ഖാസിപ്പൂരിൽ മഹാരാജാ സുഹൽദിയോയുടെ സ്മരണയ്ക്കായുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്ന ശ്രീ മോദി അവിടെ ഒരു പൊതുജനറാലിയെയും അഭിസംബോധന ചെയ്യും

നാളെ വൈകിട്ട് പോർട്ട് ബ്ലെയറിൽ എത്തിച്ചേരുന്ന പ്രധാനമന്ത്രി മറ്റെന്നാൾ കാർ നിക്കോബാറിലെ സുനാമി സ്മാരകം സന്ദർശിക്കും വാൾ ഓഫ് ലോസ്റ്റ് സോൾസിൽ അദ്ദേഹം മെഴുകുതിരി കത്തിക്കുകയും സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്യും

ടി ഐ ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം ഏതാനും ചില അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തറക്കല്ലിടും ഒരു പൊതുയോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

ബഹളത്തെത്തുടർന്ന് സഭ ചേർന്ന് മിനിട്ടുകൾക്കകം തന്നെ രാജ്യസഭാ ചെയർമാൻ എം വെങ്കയ്യ നായിഡു സഭ പിരിച്ചുവിട്ടു

ശീതകാല സമ്മേളനം അവസാനിക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂവെന്നതിനാൽ സഭാ പുറ്റുട്ട്പടികൾ സുഗമമായി നടത്തുന്നതിന് ഗവൺമെന്റുമായിട്ടി സഹകരിക്കണമെന്ന് പാർലമെന്ററി കാര്യ സഹമന്ത്രിക്ഷിട്ട്രയ് ഗോയൽ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു

തുടർച്ചയായി സഭ തടസ്സ്പ്പെട്ടുത്തുന്നത് നല്ല പ്രവണതയല്ലെന്ന് രാജ്യസഭാ ചെയർമാൻ പ്ലതവണ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി റാഫേൽ ഇടപാട് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ലോക്സഭയും ഇന്ന് പ്രക്ഷുബ്ദമായിരുന്നു

മുംബൈ യിൽ നടക്കുന്ന സദ്ഭാവ് ഉത്സവ് ഉദ്ഘാടനം ചെയ്തു സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം മുംബൈ യോഗ ഇൻസ്റ്റി റ്റ്യൂട്ടിന്റെ നൂറാം വാർഷികം പ്രമാണിച്ചാണ് പരിപാടി സംഘടിപ്പി ച്ചത് ഒത്തൊരുമയാണ് യോഗയുടെ മറ്റൊരു പേരെന്നും ലോകമെമ്പാ ടുമുള്ള സാംസ്കാരിക വിനിമയത്തിന് യോഗ അടിസ്ഥാനമാകു മെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു കൃൂബൻ പ്രസിഡന്റും പ്രഥമ വനിതയും യോഗ തങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കിയി ട്ടുള്ളതായി രാഷ്ട്രപതി പറഞ്ഞു മാനവരാശിക്ക് ലഭിച്ച വിലപ്പെട്ട സമ്മാനമാണ് യോഗയെന്ന് ക്യൂബൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടി ട്ടുള്ളതായും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു മഹാരാഷ്ട്ര ഗവർണർ സി വിദ്യാസാഗർ റാവു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഭട്നാവിസ് കേന്ദ്ര ആയുഷ്മന്ത്രി ശ്രീപദ് നായിക് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു

തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഗ്ഗവൺമെന്റ് ലഭ്യമാക്കു മെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാന്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനം നിലവിൽ ്വരുന്നതിനെ ഗവൺമെന്റ് അനുകൂലിക്കുന്നുവെന്ന് ജമ്മു കാർട്ട്മീരിലെ രാഷ്ട്രപതി ഭരണ പ്രഖ്യാപനത്തെ അംഗീകരിച്ചു്കൊണ്ടുള്ള നിയമ സംവിധാന ത്തിൻമേലുള്ള ചർച്ചയിൽ ്മൂറുപടിയായി ആഭ്യന്തരമന്ത്രിപറഞ്ഞു ചില പ്രത്യേക വിഭാഗങ്ങൾ ്ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നുത് എന്നുള്ള ആരോപണം നിഷേധിച്ച രാജ്നാഥ് സിംഗ് തെറ്റായ്തും നീതിക്ക് നിരക്കാത്തതുമായ ഒന്നും എൻ

എ ഗവൺമെന്റ് അംഗീകരിക്കില്ലെന്നും ഉറപ്പ് നൽകി

മന്ത്രിസഭാ തീരുമാനങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളു മായി ദീപു എസ്

മനുഷ്യന് ഏഴ് ദിവസം ബഹിരാകാശത്ത് തുടരാൻ കഴിയും വിധമാണ് പദ്ധതി പിഭാവനം ചെയ്തിട്ടുള്ളത് പതിനായിരം കോടിയുടേതാണ് പദ്ധതി

കൂടുതൽ സുതാരൃതയ്ക്കായി നിലവിലുള്ള നിയന്ത്രണ സംവിധാനമായ സെൻട്രൽ കൌൺസിൽ ഫോർ ഇന്ത്യൻ മെഡിസിനുപകരം പുതിയ ചട്ടക്കൂട് കൊണ്ടുവരാനാണ് ഈ ബിൽ സെൻട്രൽ കൌൺസിൽ ഫോർ ഹോമിയോപതിക്കു പകരമുള്ള നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപതി ബില്ലിനും ക്യാബിനറ്റ് അംഗീകാരം നൽകി തീരദേശ നിയന്ത്രണം സംബന്ധിച്ച വിജ്ഞാപനത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി തീരപ്രദേശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടു തന്നെ മേഖലയ്ക്കിട്ടു വർദ്ധിച്ച വികസന പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക്ട് വ്ളർച്ച കൈവരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ വിജ്ഞാപ്പന്ം

എതിരാളികളെ ഫോളോ ഓൺ ചെയ്യിക്കാതെ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യാനിറങ്ങി വിക്കറ്റ് നഷ്ടമാകാതെ എട്ട് റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ മൂന്നാം ദിവസം ബാറ്റിംഗ് തുടങ്ങിയത്

ആറ് വിക്കറ്റുകൾ നേടിയ ബുംറയാണ് ഓസീസ് ടീമിനെ തകർത്തത് ജഡേജ രണ്ടും ഇഷാന്ത് ശർമ്മ മുഹമ്മദ് ഷമി എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി ഓസ്ട്രേലിയൻ ടീമിൽ ഒരാൾക്കും അർദ്ധ സെഞ്ചറി നേടാനായില്ല അഞ്ച് പേർ രണ്ടക്കം കണ്ടതുമില്ല

ടെലികമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് റെയിൽ ടെലി കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് നാഷണൽ സീഡ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് തെഹ്രി ഹൈഡ്രോ ഡെവലപ് മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വാട്ടർ ആന്റ് പവർ കൺസൾട്ട ൻസി സർവ്വീസസ് ഇന്ത്യ ലിമിറ്റഡ് എഫ് സി ഐ ആരവിൽ ജിപ്സം ആന്റ് മിനറൽസ് ഇന്ത്യ ലിമിറ്റഡ് കുദ്രെ മുഖ് അയൺ ഓർ കമ്പനി ലിമിറ്റഡ് എന്നിവയാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കമ്പനി കൾ

്നാലാം തവണയും ഭരണം പിടിക്കാൻ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് രംഗത്തുണ്ട്